ൾ ൽ ൾ പ്രളയപശ്ചാത്തലത്തിൽ യു എ ഇ പ്രഖ്യാപിച്ച ധനസഹായം നിഷേധിച്ചതു വഴി തുടർന്നു ലഭിക്കുമായിരുന്ന വൻ സഹായ മാണ് കേന്ദ്രം നഷ്ടപ്പെടുത്തിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു

പ്രളയ സഹായം വിലക്കിയതിന്റെ കാരണം ഇനിയും വൃക്തമായിട്ടില്ല

ശബരിമല വിഷയത്തിൽ യു ഡി എഫിന്റെയും ബി ജെ പി ബി ഡി ജെ എസ് സഖ്യത്തിന്റെയും നേതൃത്വത്തിൽ സംഘടി പ്പിക്കുന്ന യാത്രകൾ നാളെ കാസർക്കോട്ട് തുടങ്ങും ബി ജെ പി സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ശ്രീധരൻപിള്ള ബി ഡി ജെ എസ് സംസ്ഥാന പ്രസിഡണ്ട് തുഷാർ വെള്ളാപ്പള്ളി എന്നിവർ നേതൃത്വം നൽകുന്ന ശബരിമല സംരക്ഷണ രഥയാത്ര മധുർ ക്ഷേത്രപരിസരത്തു നിന്നാരംഭിക്കും കർണാടക പ്രതിപക്ഷ നേതാവ് ബി എസ് യെദിയൂരപ്പ യാത്ര ഉദ്ഘാടനം ചെയ്യും കെ പി സി സി വർക്കിംഗ് പ്രസിഡണ്ട് കെ സുധാകരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണയാത്ര പെർളയിൽ മുൻ കെ പി സി സി പ്രസിഡണ്ട് എം എം ഹസ്സൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്ത് വിമോചന സമരകാലത്തേക്കാൾ മോശം സാഹചര്യമാണ് നിലവിലെന്ന് ബി ജെ പി സംസ്ഥാന പ്രസി ഡണ്ട് പി എസ് ശ്രീധരൻപിള്ള അഭിപ്രായപ്പെട്ടു

നീക്കമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു എസ് എൻ ഡി പി യോഗത്തിലെ വിശ്വാസികൾ എൻ ഡി എ സംഘത്തിനൊപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയിൽ കഴിഞ്ഞ ദിവസം സ്ത്രീകൾ ക്കുനേരെ ആക്രമണം ഉണ്ടായി എന്ന ആരോപണം വാസ്തവ വിരുദ്ധമാ ണെന്നും സിപിഐഎം വിഭാഗത്തിൽപ്പെട്ട മാധ്യമപ്രവർത്തക രാണ് ഇത്തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

ശബരിമല വിഷയ ത്തിൽ എൻ ഡി എ നാളെ ആരംഭിക്കുന്ന യാത്ര ബോധവത്ക രണ പ്രക്രിയയുടെ ഭാഗമാണെന്നും ശ്രീധരൻപിള്ള വൃക്തമാ ക്കി തിരുവിതാംകൂർ ദേവസ്ഥം ബോർഡ് യോഗം തിരുവനന്തപു രത്ത് തുടങ്ങി

സുപ്രീംക്കോടതി ആവശൃപ്പെട്ടാൽ സ്ത്രീ പ്രവേശന കാരൃത്തിൽ ദേവസ്വം ബോർഡ് റിപ്പോർട്ട് നൽകുമെന്നും സ്റ്റാൻഡിംഗ്ട്ട് കൌൺസലിനെ മാറ്റണമെന്ന ആവശ്യം ചർച്ച ചെയ്യുമെന്നും ബോർഡംഗം കെ പി ശങ്കരദാസ് അറിയിച്ചു ശബരിമലയിൽ ആചാരലംഘനം നടത്തിയ ദേവസ്വം ബോർഡംഗം കെ പി ശങ്കരദാസിനെ സ്ഥാനത്തു നിന്ന് നീക്ക ണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു ആചാരം സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമുള്ള ബോർഡംഗം തന്നെ ആചാരലംഘനം നടത്തിയെന്ന് കാണിച്ചാണ് അഭിഭാഷ കനായ രാംകുമാർ ഹർജി ഫയൽ ചെയ്തത് കെ സുരേന്ദ്രൻ അടക്കം നേതാക്കളും ഈയാവശൃം ഉന്നയിച്ച് നൽകിയ ഹർജിയും കോടതി ഇന്ന് പരിഗണിച്ചേക്കും ശബരിമലയിൽ ആചാരലംഘനം നടത്തിയിട്ടില്ലെന്ന് ദേവസ്വം ബോർഡംഗം കെ പി ശങ്കരദാസ് വൃക്തമാക്കി

ആഴി തെളിയിക്കാൻ പോകുമ്പോൾ ബോർഡംഗം എന്ന നിലയിൽ പോയതാണെന്നും ശങ്കരദാസ് വിശദീകരിച്ചു ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സുപ്രീംകോടതിയുടെ അന്തിമ വിധിയുണ്ടാകുന്നതു വരെ യുവതികളുടെ പ്രവേശനം തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി സൂപ്രീംകോടതിയിൽ നിലനിൽക്കുന്ന കേസ് ഹൈക്കോടതിയിൽ പരിഗണിക്കാനാവില്ലെന്ന് വൃക്തമാക്കിയാണ് ഹർജി നിരസിച്ചത്

ഇത്തരത്തിൽ തന്ത്രിക്ക് നിർദേശം നല്കാൻ ഹൈക്കോട തിക്ക് അധികാരമില്ലെന്ന് കോടതി വൃക്തമാക്കി

ശബരിമലയിൽ മാധൃമപ്രവർത്തകരെ തടഞ്ഞി ട്ടില്ലെന്നും ഗവൺമെന്റ് കോടതിയിൽ വൃക്തമാക്കി ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സതൃഗ്രഹ സ്മാരകം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

പ്രസാദം പദ്ധതി യുടെ ഭാഗമായി ദേവസ്വം സജ്ജീകരിച്ച സിസിടിവി കൃാമറാ സംവിധാനത്തിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും ബന്ധു നിയമന വിഷയത്തിൽ മന്ത്രി കെ ടി ജലീലിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് യൂത്ത് ലീഗ് നേതൃത്വം കോഴിക്കോട്ട് അറിയിച്ചു മന്ത്രി ഇതുവരെ ്രനടത്തിയ നിയമന ങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയെ സമീപി ക്കുന്നതെന്ന് യൂത്ത് ലീഗ് സീനിയർ വൈസ് പ്രസിഡണ്ട് നജീബ് കാന്തപുരം ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് എന്നിവർ മാധ്യ മങ്ങളോട് പറഞ്ഞു അന്വേഷണം സംബന്ധിച്ച് വിജിലൻസിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് മന്ത്രി ജലീൽ സ്ഥാനത്തു നിന്നു മാറുന്നതു വരെ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകു മെന്നും അവർ പറഞ്ഞു നിയമന കാര്യത്തിൽ യൂത്ത് ലീഗിന് കോടതിയെ സമീപിക്കാമെന്ന് മന്ത്രി നേരത്തെ അഭിപ്രായപ്പെട്ടി രുന്നു കോട്ടയത്തെ കെവിന്റെ വധം ദുരഭിമാനക്കൊല തന്നെയാ ണെന്ന് സെഷൻസ് കോടതി വിധിച്ചു ഒരു സുപ്രീംകോടതി വിധി യുടെ അടിസ്ഥാനത്തിൽ കെവിന്റെ കൊലപാതകത്തെ ദുരഭി മാന കൊലയായി പരിഗണിക്കണമെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു അതിവേഗ കോടതിയിൽ ആറു മാസത്തിനകം കേസിന്റെ വിചാരണ പൂർത്തിയാക്കണ മെന്ന് കോടതി ഉത്തരവിട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരാഖണ്ഡിലെ ഹർസിലിൽ സൈനികരോടും ഇൻഡോ ടിബറ്റൻ അതിർത്തി പൊലീസി നുമൊപ്പം ദീപാവലി ആഘോഷിച്ചു

അങ്ങേയറ്റത്തെ കാലാവസ്ഥയും ഭൂമിശാസ്ത്ര പരമായ പ്രയാസം നിലനിൽക്കുന്നതുമായ പ്രദേശത്ത് സൈനി കർ നടത്തുന്ന സേവനം രാഷ്ട്രത്തിന് ശക്തിയാണെന്നും ജന ങ്ങൾക്ക് സുരക്ഷാ ബോധം നൽകുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സൈനികർക്ക് അദ്ദേഹം മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു

അന്തരിച്ച ചലച്ചിത്ര പ്രതിഭകളായ ശശി കപൂർ ശ്രീദേവി കരുണാനിധി കൽപ്പന ലാജ്മി എന്നിവരുടെ ചിത്രങ്ങൾ സ്മൃതിവിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്

റീമ കല്ലിങ്ങൽ പത്മപ്രിയ എന്നി വരാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കൂടുതൽ സമയം വേണമെന്ന സിനിമാ സംഘടനയുടെ ആവശ്യം അംഗീകരിച്ചാണ് ഹർജി പരിഗണിക്കുന്നത് നീട്ടിയത് നെയ്യാറ്റിൻകര കൊലപാതകത്തിൽ അനേഷണസംഘം വിപു ലീകരിച്ചു രണ്ട് സർക്കിൾ ഇൻസ്പെക്ടർമാരെയും ഷാഡോ പൊലീസിനെയും സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്

അതേസമയം കൊലപാതകത്തിൽ പ്രതിയായ ഡി വൈ എസ് പി ഹരികുമാർ തമിഴ്നാട്ടിലെ മധുരയിലേക്ക് കടന്നുവെന്ന സൂച നയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ൃതമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് നെയ്യാറ്റിൻകരയിലുണ്ടായത് ഗവൺമെന്റ് സ്പോൺസേഡ് കൊലപാതകമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്ത ല ആരോപിച്ചു

ഇയാളെ ഉടൻ പിടികൂടണ മെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു

തിര ക്കഥയുടെ ചിത്രീകരണം അനിശ്ചിതമായി വൈകിയതിനെ തുടർന്നാണ് എം ടി തിരക്കഥ തിരികെ ആവശ്യപ്പെട്ട് കോഴിക്കോട് മുൻസിഫ് കോടതിയെ സമീപിച്ചത് കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലറും എഴുത്തുകാരനുമായ ഡോ

ഹൃദയസംബന്ധമായ അസുഖത്തെത്തുടർന്ന് കോഴിക്കോട്ടെ സ്വകാരൃ ആശുപത്രിയിൽ ഇന്നലെ വൈകീട്ടായിരുന്നു ഡോ

സംസ്കാരം ഇന്ന് ഉച്ച കഴിഞ്ഞ് രണ്ടിന് പാലക്കാട് കോങ്ങാട് ബംഗ്ലാംകുന്നിലെ വസതിയിൽ നട ക്കും ഡി വൈ എഫ് ഐ സംസ്ഥാന സമ്മേളനത്തിന് ഞായറാഴ്ച കോഴിക്കോട്ട് തുടക്കമാകും

കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാരംഭിക്കുന്ന പതാക ജാഥ ശനിയാഴ്ച കോഴിക്കോട്ടെത്തും

മൂന്നു ദിവസത്തെ പരിപാടിയിൽ പുരാരേഖാ പ്രദർശനം കോഴിക്കോട് നാടകഗ്രാമം ഒരുക്കുന്ന ജ്ജ് നല്ല മന്സനാകാൻ നോക്ക് എന്ന നാടകം എന്നിവയടക്കം പരിപാടികളുമുണ്ടാകും മന്ത്രിമാരായ ടി പി രാമകൃഷ്ണൻ എ കെ ശശീന്ദ്രൻ എന്നിവർ സംബന്ധിക്കും പൊന്നാനി ചങ്ങരംകുളം ട്രഷറികളിൽ നിക്ഷേപകരുടെ അക്കൌണ്ടുകളിൽ തിരിമറി നടത്തിയ ട്രഷറിജീവനക്കാരൻ സന്തോഷിനെ തെളിവെടുപ്പിനായി പൊന്നാനിയിലെത്തിച്ചു തട്ടി പ്പിനെ തുടർന്ന് ഒളിവിൽ പോയ ഇയാളെ കഴിഞ്ഞ ദിവസം തമി ഴ്നാട്ടിൽ നിന്നാണ് പൊലീസ് അറസ്റ്റു ചെയ്തത്

തട്ടിപ്പിനെ തുടർന്ന് മലപ്പുറം ജില്ലാ ട്രഷറി ഓഫീസറടക്കം നാല് ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലാണ് പ്രളയത്തെ തുടർന്ന് മാറ്റിവെച്ച നെഹ്രുട്രോഫി ജലോത്സവം ശനിയാഴ്ച ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കും

ശനിയാഴ്ച രാവിലെ ചെറുവള്ളങ്ങളുടെ മത്സരവും ഉച്ചയ്ക്ക് ശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക മത്സരങ്ങളും മറ്റെല്ലാ വിഭാഗങ്ങളുടെ ഫൈനൽ മത്സരങ്ങളും അരങ്ങേറും വികസനത്തിന്റെ പേരിൽ പ്രകൃതിയെ നശിപ്പിച്ച് ഭാവി സ്വ യം അപകടത്തിലാക്കുകയാണെന്ന് ബിനോയ് വിശ്വം എം പി പറഞ്ഞു ഒയിസ്ക ഇന്റർനാഷണൽ സൌത്ത് ഇന്ത്യ ചാപ്റ്റർ കോഴിക്കോട്ട് സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ സംസാരി ക്കുകയായിരുന്നു അദ്ദേഹം

തൊടുപുഴ സ്വദേശി പിണക്കാട്ട് സെബാസ്റ്റ്യൻ എന്ന കുട്ടിയച്ചൻ ആണ് അറസ്റ്റിലായത്